പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വിക്സനപദ്ധതിയുടെ മൂന്നാംഘട്ടത്തിന് തുടക്കമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംരംഭങ്ങൾ തുടങ്ങുന്ന വർക്ക് ഗവ എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ കോഴിക്കോട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ സർഗാലയ അന്താരാഷ്ട്ര കര്കൌശ്ലമേള ഗവർണർ ആരിഫ് മുഹമ്മ ദ്ഖാൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും

നിലവിൽ ഗവ

ലോട്ടറി മാഫിയയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേന്ദ്ര ഗവ നികുതി ഏകീകരിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് കുറ്റപ്പെടുത്തി ഇതര സംസ്ഥാന ലോട്ടറി മാഫിയയെ സംസ്ഥാനത്തേക്ക് നുഴഞ്ഞുകയറാൻ അനു വദിക്കില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു നികുതി ഏകീകരണത്തോടെ സംസ്ഥാനത്തിന് വരുമാനനഷ്ടമുണ്ടാകുമെന്നും ഡോ തോമസ് ഐസക് അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഗ്രാമീണറോഡ് വികസന പദ്ധതിയുടെ മൂന്നാംഘട്ടത്തിന് തുടക്കമായി

ഡൽഹിയിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പദ്ധതി ഉദ്ഘാ ടനം ചെയ്തു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനാകുന്നു യോഗത്തിൽ പോർച്ചുഗീസ് പ്രധാനമന്ത്രി അന്റോണിയോ ്കോസ്റ്റയും പങ്കെടു ക്കും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വിപ്പുലമായ പരിപാടികൾ സംഘടി പ്പിക്കും രാജ്യാന്തര ആഘോഷ സമിതിയിൽ മുൻ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാൻ കി മൂണും അംഗമാണ് നിർഭയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളോട് ഏഴു ദിവസത്തിനകം ദയാഹർജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് തിഹാർ ജയിൽ അധികൃതർ നോട്ടീസ് നൽകി ഇതിനകം ദയാഹർജി നൽകി യില്ലെങ്കിൽ കോടതിയുടെ അനുമതിയോടെ ശിക്ഷ നടപ്പാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് ജയിൽ ഡിജിപി സന്ദീപ് ഗോയൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്നലെ പ്രതികളിലൊരാ ളായ അക്ഷയ്കുമാറിന്റെ പുനഃപരിശോധനാ ഹർജി ഇന്നലെ സുപ്രീംകോടതി തള്ളിയിരുന്നു പൌരത്വഭേദഗതി നിയമത്തിന്റെ ലക്ഷ്യങ്ങളും ഗുണങ്ങളും ഉദ്ദേ ശൃവും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്ന കാര്യം പരി ഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നിയ മത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന തെറ്റായ പ്രചാരണങ്ങൾ തടയാൻ ഉചിതമായ നടപടി എടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദേശിച്ചു

സമൂഹത്തെ കുറിച്ച് കരുതലും ഉത്കണ്ഠയും ഒരേപോലെ പങ്കിട്ട സാഹിത്യകാരന്മാരാണ് ഒഎൻവി കുറുപ്പും ടി പത്മനാഭനുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

സർവകലാശാല ക്യാമ്പസിലെ ഒഎൻവി സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതി മയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംരംഭങ്ങൾ തൂടങ്ങുന്നവർക്ക് ഗവ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കേരളത്തെ വ്യവസായ സൌഹൃദ്ദ് സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റ് നിറവേറ്റിവരുന്നത്

മൂന്ന് കിലോമീറ്റർ കൂടി മാത്രമാണ് പ്പൈപ്പ് ഇടാൻ ശേഷിക്കുന്നത് പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് തിരുവനന്തപുരത്ത് മുതീർന്ന മാധ്യമപ്രവർത്തകരുമായി സംവദി ക്കവേ മന്ത്രി അറിയിച്ചു കോൺഗ്രസും സിപ്പിഐഎമ്മും രാജ്യത്ത് കലാപം സൃഷ്ടി ക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എം ടി രമേശ് കുറ്റപ്പെടുത്തി മതാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സർവ കലാശാലകളിലാണ് ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നതെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു യുവമോർച്ചയുടെ സ്വാഭിമാൻ സദസ്സ് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു രമേശ് സിഐടിയു സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഇന്ന് സമാ പിക്കും പൈകിട്ട് സമാപന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ബംഗ്ലാദേശ് ഉഗാണ്ട ഉസ്ബക്കിസ്ഥാൻ തയ്ലണ്ട് നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നും കരകൌശലവിദ ഗ്നർ എത്തും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ ടി പി രാമകൃഷ്ണൻ തുട ങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും വിദേശ വിനോദസഞ്ചാരി കൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തോളം പേർ മേളയും പ്രദർശനവും കാണാൻ എത്തുമെന്നാണ് വിലയിരുത്തൽ

പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരം ഞായറാഴ്ച കട്ടക്കിലാണ്

അടുത്ത വർഷത്തെ ഐപിഎൽ ക്രിക്കറ്റ് ലേലം ഇന്ന് കൊൽക്ക ത്തയിൽ നട്ക്കും

താരങ്ങളുടെ ഏറ്റവുമുയർന്ന അടിസ്ഥാന വില രണ്ട് കോടി രൂപ യാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ്സി മറുപടിയി ല്ലാത്ത രണ്ട് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപി ച്ചു

പത്ത് പോയിന്റ് നേടിയ നോർത്ത് ഈസ്റ്റ് ആറാം സ്ഥാന ത്താണ് ഇന്ന് ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റിയെ നേരിടും കലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ പുരുഷ വിഭാഗ ത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളജും വനിതാ വിഭാഗത്തിൽ പാലക്കാട് മേഴ്സി കോളജും മുന്നിട്ടു നിൽക്കുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളജാണ് രണ്ടാംസ്ഥാനത്ത്

താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമിക്കാൻ ഉദ്ദേശിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ സർവെയും പദ്ധതി രൂപരേഖ്യതയ്യാറാക്കലും ഇതോടൊപ്പം ആരംഭിക്കും

ഈ വർഷത്തെ മാതൃഭൂമി സ്റ്റാഹിത്യ്പുരസ്കാരത്തിന് എഴു ത്തുകാരൻ യുഎ ഖാദറിനെ തെരുണ്ഞെടുത്തു

കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന് കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ആറ് പ്രതികളെ ഇന്ന് ദൃശ്യങ്ങൾ കാണിക്കും

വിചാരണ കോടതിയുടെ മേൽനോ ട്ടത്തിലായിരിക്കും ദൃശ്യങ്ങളുടെ പരിശോധന എറണാകുളം ജില്ലയിൽ മോട്ടോർവാഹന സോണൽ പരിശോ ധനയിൽ ആയിരത്തോളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്ത തായി മോട്ടോർവാഹന വകുപ്പ് കൊച്ചിയിൽ അറിയിച്ചു

സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് കൂൾ ഫിലിം എന്നിവയുമായി ബന്ധപ്പെട്ട ഗതാഗത നിയമലംഘനങ്ങളാണ് പരിശോധിച്ചത് എസ്എൻഡിപി യോഗം മലബാർ മേഖലയിലെ യൂണിയൻ സെക്രട്ടറുമാരുടെയും പ്രസിഡന്റുമാരുടെയും യോഗം ഉച്ചക്ക് കോഴിക്കോട്ട് ചേരും

മുതിർന്ന കോൺഗ്രസ് നേതാവും അധ്യാപക ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്ന പയ്യന്നൂർ കണ്ടോത്തെ വി എൻ എരിപുരം നിര്യാതനായി

സംസ്കാരം ഉച്ചക്ക് കണ്ടോത്ത് സമുദായ ശ്മശാനത്തിൽ നടത്തും

പൌരത്വഭേദ്ഗതി നിയമ്പ് സംബന്ധിച്ച സെമിനാറുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം പരിപാടി സംഘ ടിപ്പിച്ച എബിവിപി വിദ്യാർത്ഥികളെ എസ്എഫ്ഐ ക്കാർ ആക്രമി ക്കുകയായിരുന്നുവെന്നാണ് പരാതി ഇടതുപക്ഷ പ്രവർത്തകരായ അധ്യാപ്പകരുടെ പിന്തുണയോടെ യാണ് വിദ്യാർത്ഥികൾ അക്രമം നട്ടത്തിയതെന്ന് ബിജെപി ആരോ പിച്ചു തൃശൂർ വെള്ളാങ്ങല്ലൂർ കോണത്തുകുന്ന് ഗവൺമെന്റ് യുപി സ്കൂളിന് സംസ്ഥാനു ഗവൺമെന്റിന്റെ പ്രത്യേക പുരസ്കാരം

ഇടുക്കി ്ഹൈറേഞ്ചിന്റെ വാണിജ്യ സാംസ്കാരിക മേളയായ കട്ടപ്പന ഫെസ്റ്റിന് തുടക്കമായി ചലച്ചിത്ര സംവിധായകൻ ജോണി ആന്റണി ഫെസ്റ്റിന് തിരി തെളിയിച്ചു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും കേളുഏട്ടൻ പഠനഗവേഷണകേന്ദ്രം സ്ഥാപക ഡയറക്ടറുമായിരുന്ന പ്രൊഫ

സംസ്കാരം രാവിലെ എടച്ചേരി തലായിലെ വീട്ടുവളപ്പിൽ നടക്കും